രാജ്യത്തെ നിക്ഷേപ സൌഹൃദമാക്കാൻ കൂടുതൽ സാമ്പത്തിക പരിഷ്ക്കാരങ്ങൾക്ക് ഒരുക്കമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ

കരിഞ്ചന്തയും പൂഴ്ച്ച്ത്തിവയ്പ്പും തടയാൻ സംസ്ഥാനങ്ങളോട് ്കേന്ദ്രം

സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ ന് കേസുകൾ കൈകാരൃം ചെയ്യുന്നതിനുള്ള മാർഗ്ഗരേഖകൾ സംബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ റിപ്പോർട്ട് തേടി

വനിതാ പൈലറ്റായി

ഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും

ന്യൂഡൽഹയിൽ നടക്കുന്ന ഇന്ത്യ സ്വീഡൻ വ്യാപര ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ കമ്പനി നികുതി കുറയ്ക്കുന്നത് ഉൾപ്പെടെ നിരവധി നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ബാങ്കിംഗ് ഖനനം ഇൻഷുറൻസ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീമതി നിർമലാ സീതാരാമൻ പറഞ്ഞു രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ സ്വീഡിഷ് സംരംഭകരെ കേന്ദ്ര ധനമന്ത്രി ക്ഷണിച്ചു സ്വീഡിഷ് വ്യവസായ മന്ത്രി ഇബ്രാഹിം ബെലെയ്നുമായി ശ്രീമതി നിർമലാ സീതാരാമൻ വ്യാപാര വാണിജ്യ കാര്യങ്ങൾ ചർച്ച ചെയ്തു

ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള നിർണ്ണായക കണ്ണിയായാണ് സ്വീഡനെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്വീഡൻ രാജാവ് കാൾ പതിനാറാമൻ ഗുസ്താഫിനെയും പത്നി സിൽവിയെയും ആദരിച്ച് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി സ്റ്റാർട്ടപ്പ് ഇന്ത്യ ക്ലീൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ സ്വീഡന്റെ സഹകരണം ആവശ്യമാണെന്ന് ശ്രീ രാംനാഥ് ക്ട്രോവിന്ദ് പറഞ്ഞു

അടുത്ത തലമുറയുടെ അടിസ്ഥാന സൌകര്യ പ്രിക്ക്സന പദ്ധതികൾക്ക് സഹായം പ്രതീക്ഷിക്കുന്നതായും രീഷ്ട്ര്ട്പതി പറഞ്ഞു ഇന്ത്യയുമായി സഹകരിച്ച് കമ്പോള രംഗത്ത് പരസ്പര സഹായം ലക്ഷ്യമിടുന്നതായും രാഷ്ട്രപതി വ്യക്തമാക്കി

ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന അവലോകന യോഗമാണ് ഇത് സംബന്ധിച്ച ആവശ്യം സംസ്ഥാനങ്ങളോട് ഉന്നയിച്ചത്

ഇപ്പോൾ നിലനിൽക്കുന്നത് താൽക്കാലിക ലഭ്യതക്കുറവാണെന്ന് യോഗം വിലയിരുത്തി

കേന്ദ്രഗവൺമെന്റ് ഉള്ളിയുടെ കയറ്റുമതി നേരത്തെ നിരോധിച്ചിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കളെല്ലാം പ്രചാരണത്തിൽ സജീവമാണ്

ലക്ഷദ്വീപിന് സമീപം അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം മൂലം കേരളത്തിലെ ചില ജില്ലകളിലും മഴ ഉാകാൻ സാധ്യതയു്

നിർഭയ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് ആറാഴ്ചയ്ക്കകം ചീഫ് സെക്രട്ടറിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും റിപ്പോർട്ട് സമർപ്പിക്കണം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഫണ്ട് ചെലവഴിച്ചത് സംബന്ധിച്ചും നിലവിലെ ലഭ്യതയും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം ഇതിന് പുറമേ മാർഗരേഖകളുടെ പ്രതികരണം അറിയിക്കാൻ സംസ്ഥാന ഡി ജി പി മാരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തടയുന്നതിന് കൈക്കൊണ്ട ഉപാധികൾ അറിയിക്കാനും നിർദ്ദേശമുണ്ട്

ഇതോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ വൻ വ്യാവസായിക ദുരന്തങ്ങളിൽ ഒന്നായ ഭോപാൽ ദുരന്തത്തിൽ യൂണിയൻ കാർബൈഡ് പ്ലാന്റിൽ നിന്നും പുറന്തള്ളിയ മീതൈൽ ഐസോസയനേറ്റ് വാതകം ശ്വസിച്ച് നിരവധി പേരാണ് മരിച്ചത്

ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാതെ പത്ത് ലക്ഷത്തോളം പേർ ഇന്നൂും കഴിയുന്നുണ്ട്

അടുത്തവർഷം ബ്രസൽസിൽ നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ഉർസുല ലെയിനിന്റെ ക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു

അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഗുണഫലം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനാണ് നടപടി ജമ്മു സിവിൽ സെക്രട്ടേറിയറ്റിൽ ശ്രീ മുർമുവിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുമായി നടത്തിയ യോഗത്തിലാണ് തീരുമാനം

ബ്രിഹിരാകാശ ഏജൻസി നാസ ലൂണാർ ഓർബിറ്റർ എടുത്ത ചിത്രങ്ങൾ താരതമ്യം ചെയ്ത ശേഷമാണ് നാസയുടെ സ്ഥിരീകരണം

ലാൻഡറിന്റെ അവശിഷ്ടങ്ങളുടെയും ലാൻഡർ പതിക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിലെ മണ്ണിനുായ വൃത്യാസങ്ങളും പഠന വിധേയമാക്കിയുള്ള ചിത്രങ്ങളാണ് നാസ പുറത്തുവിട്ടത്

ശാസ്ത്രജ്ഞനായ ചെന്നൈ സ്വദേശി ഷൺമുഖ സുബ്രഹ്മണ്യൻ ലാൻഡർ പതിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ പഠനവിധേയമാക്കിയാണ് നിഗമനത്തിലെത്തിയത് ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലവും ചന്ദ്രോപരിതലത്തിലെ മണ്ണിന് വൃത്യാസം സംഭവിച്ചതുമെല്ലാം നാസ ചിത്രീകരിച്ചിട്ടു്

സ്വദേശിയായ ശിവാംഗി ഷോർട്ട് ക്സർപ്പിസ് കമ്മീഷൻ പൈലറ്റായി കഴിഞ്ഞ ജൂണിലാണ് കമ്മീഷൻ പ്ലെയ്തത് ഒരു വനിത ഉൾപ്പെടെ ഡോർണിയർ പൈലറ്റാകാൻ പ്ലൂ ഓഫീസർമാർക്ക് ഐ എൻ എസ് ഗരുഡയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിശിഷ്ട ഗോൾഡൻ വീംഗ് പുരസ്കാരം നൽകി ആദരിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു

ഇതിനായി അണിചേരാൻ എം ബന്ധപ്പെട്ടവരോട് ഉപരാഷ്ട്രപതി ആഹ്വാനും ചെയ്തു അന്താരാഷ്ട്ര ഭിന്നശേഷി സൌഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച ഭിന്നശേഷിക്കാർക്കും അവരുടെ സ്കാർഘ്ടനകൾക്കും ന്യൂഡൽഹിയിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് ശ്രീ വെങ്കയ്യനായിഡു

വൈകിട്ട് ഇന്ത്യൻ വനിത ടീം ആതിഥേയരായ നേപ്പാളിനെ നേരിടും